പാല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ഘടക കക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ ആർംഭിച്ചു പാലാ മണ്ഡലത്തിൽ മാത്രം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തിൽ ദുരുദ്ദേശമില്ലെന്ന് സ്ഥാന മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ് മുൻപ്രധാനമന്ത്രി ഡോ മൻമോഹൻസിംഗിന്റെ എസ്പിജി സുരക്ഷ പിൻവലിച്ചു കവളപ്പാറ ദുരന്ത്മേഖലയിൽ തെരച്ചിൽ തുടരുന്നതിനെ പറ്റി തീരുമാനമെടുക്കാൻ സർവ്വകക്ഷിയോഗം തുടങ്ങി

ഭേദഗതി ചെയ്ത മോട്ടോർവാഹനനിയമം സപ്തം ബർ ഒന്നിന് പ്രാബല്യത്തിൽ വരും കൊങ്കൺപാതയിലെ തടസ്സപ്പെട്ട ട്രെയിൻഗതാഗതം ഇന്ന് പുനഃസ്ഥാപിക്കാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ന് ഫ്രാൻസിലെ ബിയാറിറ്റ്സിൽ കൂടി ക്കാഴ്ച നടത്തും

ഏതാനും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ വർധിപ്പിച്ച വിഷ യവും കൂടിക്കാഴ്ചയിൽ ഉയർന്നു വന്നേക്കും

ഇന്നലെ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ ആന്റോ ണിയോ ഗുട്ടറസുമായും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ഘടകക ക്ഷികളുമായി ഉഭയകക്ഷിചർച്ചക്ക് തീരുമാനമായി കോൺഗ്രസും മുസ്ലിംലീഗും തമ്മിൽ ചർച്ച ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്ത നങ്ങൾക്ക് യോഗത്തിൽ ഉപസമിതിയും രൂപീകൃരിച്ചു രാവിലെ പ്രതിപക്ഷനേതാവിന്റെ വസത്തിയിലാണ് യുഡിഎഫ് അടിയന്തര നേതൃയോഗം ചേർന്നത് പിഎസ് സി ക്രമക്കേടിനെതിരെ സ്മരം ശക്തമാക്കാനും അടു ത്തമാസം മൂന്നിന് രാപ്പകൽസമരം നടത്താനും യോഗം തീരുമാ നിച്ചു പാലായിലെ എൻസിപ്പി സ്ഥാനാർത്ഥിയെ പറ്റി അന്തിമ തീരു മാനമെടുക്കേണ്ടത് പാർട്ടി കേന്ദ്രകമ്മറ്റിയാണെന്ന് എൻസിപി ദേശീയ ജന സെക്രട്ടറി ടിപി് പീതാംബർമാസ്റ്റർ കൊച്ചിയിൽ അറി യിച്ചു പാല സീറ്റ് പാർട്ടിക്കു തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇടതുപ ക്ഷത്തിന് അനുകൂലമായ സാഹചര്യമുണ്ടാക്കുമെന്നും പീതാംബ രൻമാസ്റ്റർ അഭിപ്രായപ്പെട്ടു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർട്ടി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം വൃക്തമാ ക്കി

ഇതു സംബന്ധിച്ച് തെര ഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകും

പാല സീറ്റിൽ കോൺഗ്രസ് മാണി വിഭാഗം തീരു മാനമെടുക്കുമെന്ന് അദ്ദേഹം വൃക്തമാക്കി പാർട്ടി നേതൃത്വത്തെയും നയത്തെയും അനുസരിക്കാത്തവർക്ക് പുറത്തുപോകാമെന്നും പാർട്ടി നിലപാടിനെതിരെ ആരു നിലപാടെ ടുത്താലും അവർക്കെതിരെ നടപ്ടി വേണമെന്നും അദ്ദേഹം കോഴി ക്കോട്ട് ആവശൃപ്പെട്ടു

ശശി തരൂരിന്റെ പ്രധാനമന്ത്രി സ്തുതി അവസാനിപ്പിക്കണമെന്നും അത്തരക്കാർക്ക് ബിജെപിയിലേക്ക് പോകാമെന്നും മുരളീധരൻ പറഞ്ഞു പാലായിൽ ആരു മത്സരിക്കുമെന്ന കാര്യത്തിൽ വെളളിയാഴ്ച തീരുമാനമെടുക്കുമെന്ന് ബിജെപി സംസ്ഥാനപ്രസിഡന്റ് പിഎസ് ശ്രീധരൻപിളള പറഞ്ഞു പാർട്ടി ജില്ലാകമ്മറ്റി മത്സരിക്കാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഒരു വാർത്താചാനലിൽ അറിയിച്ചു വിശ്വാസികൾക്കൊപ്പമാണെന്ന് സിപിഐഎം വാദം വാച കകസർത്ത് മാത്രമാണെന്നും നിലപാട്ട് ്മാറ്റിയെങ്കിൽ വിശ്വാസിക ളോട് സിപിഐഎം മാപ്പുപ്പറയുണ്ട്മെന്നും ശ്രീധരൻപിളള ആവശ്യ പ്പെട്ടു പാലാ നിയമസഭാ മണ്ഡ്ലത്തിൽ മാത്രം ഉപ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ ദുരുദ്ദേശമില്ലെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു സീറ്റ് ഒഴിവ് വന്ന ശേഷം ഒക്ടോബറിൽ ആറുമാസം തികയുന്നത് കൊണ്ടാണ് പാലായിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്ത മാക്കി മറ്റു മണ്ഡലങ്ങളിൽ ഒക്ടോബറിൽ വിജ്ഞാപനം വരുമെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ചേശ്വരം വട്ടിയൂർക്കാവ് കോന്നി അടൂർ എറണാകുളം നിയ മസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് ഇവിട ങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ നവംബർ വരെ സമയമുണ്ടെന്നും മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു പാലായിൽ മാത്രമായി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കമ്മീഷൻ നടപടി ദുരുദ്ദേശപരമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടരി കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തിയിരുന്നു

സംഘപരിപാർ അജണ്ടനടപ്പാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനോട് കോൺഗ്രസിന് ഒരിക്കലും യോജിക്കാനാവിന്റെ ല്ലന്ന് അദ്ദേഹം തിരു വ ന ന്ത പു രത്ത് പറഞ്ഞു മോദിയെ എതിർക്കുന്നത്കൊണ്ട് ചില കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാവുന്ന അസ്വസ്ഥത അസ്ഥാനത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കേണ്ടത് പ്രതിപക്ഷി പാർട്ടികളുടെ ചുമതലയാണെന്നും ബെന്നി ബെഹ്നാൻ പറഞ്ഞു വിശ്വാസികൾക്കൊപ്പമെന്ന സിപിഐഎം നീല്പാട് നവോത്ഥാന സമിതിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി സ്ഥിതി കൺവീനർ പുന്നല ശ്രീകുമാർ പറഞ്ഞു സമിതിയുടെ തുടർപ്രവർത്തനത്തിൽ ഇത് ആശങ്കയുണ്ടാക്കുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു ഇക്കാര്യത്തിൽ മുഖ്യമ്ന്ത്രി വ്യക്തത വരുത്തണം വിശ്വാസസംരക്ഷണവും നവോത്ഥാനവും ഒന്നിച്ചുപോവില്ലെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു മുൻപ്രധാനമന്ത്രി ഡോ മൻമോഹൻസിംഗിന്റെ എസ്പിജി സുരക്ഷ പിൻവലിച്ചു എന്നാൽ അദ്ദേഹത്തിന് ഇസഡ് പ്ലസ് സുരക്ഷ തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം ന്യൂഡൽഹിയിൽ വൃക്തമാക്കി

മുൻപ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെയും എസ്പിജി സുരക്ഷ പിൻവലിച്ചിട്ടുണ്ട്

ഐ എൻഎക്സ് കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്ത നടപടി ചോദ്യം ചെയ്തും എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് തടയണമെന്നും ആവശ്യ പ്പെട്ടാണ് ചിദംബരം ഹർജി നൽകിയിരുന്നത് എന്നാൽ ചീഫ് ജസ്റ്റി സിന്റെ അനുമതിയില്ലാതെ കേസ് ഉൾപ്പെടുത്താനാവില്ലെന്ന് ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ജസ്റ്റിസ് ഭാനുമതി അറിയിച്ചു ഐഎൻഎക്സ് മീഡിയ അഴിമതിക്കേസിൽ പി ചിദംബര ത്തിന്റെ വിദേശ നിക്ഷേപത്തിന്റെ തെളിവ് ലഭിച്ചെന്ന് എൻഫോ ഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് അറിയിച്ചിരുന്നു

്വ കവളപ്പാറ ദുരന്തമേഖലയിൽ തെരച്ചിൽ തുടരുന്നതിനെ പറ്റി തീരുമാനമെടുക്കാൻ പോത്തുകല്പ് പഞ്ചായത്ത് ഓഫീസിൽ സർവ്വ കക്ഷിയോഗം തുടങ്ങി

കുഴിഞ്ഞ അഞ്ചുദിവസങ്ങളിൽ തുടർച്ചയായ തെരച്ചിൽ നടത്തിയിട്ടും ഒരു മൃതദേഹം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നലെ ഉച്ചയോടെ കനത്തമഴയെ തുടർന്ന് തെരച്ചിൽ നിർത്തിവെക്കുക്യായിരുന്നു പ്രളയബാധിതകുടുംബങ്ങൾക്ക് ഗവ നൽകുന്ന പതിനായിരം രൂപയുടെ ധനസ്ഹായം ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുമെന്ന് മന്ത്രി ടി പിർാമകൃഷ്ണൻ അറിയിച്ചു പ്രളയത്തിലും ഉരുൾപൊട്ട ലിലും കോഴിക്കോട് ജില്ലയിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ധന സഹായ വിതരണത്തിന് നടപടി ഇന്ന് പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു

മറ്റു ള്ളവരുടേത് നടപടിക്രമങ്ങൾ പൂർത്തിയായശേഷം വിതരണം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു

റോഡിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന വൃവ സ്ഥകൾ ഉൾപ്പെടുത്തി കേന്ദ്ര ഗവ ഭേദഗതി ചെയ്ത മോട്ടോർ വാഹന നിയമം സപ്തംബർ ഒന്നിന് പ്രാബല്യത്തിൽ വരും ഇതോടെ നിയമലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴ ഗണ്യമായി വർധി ക്കും നിർദ്ദിഷ്ട ഭേദഗതികൾ അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ജോയിന്റ് പ്രടാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത് പറഞ്ഞു

മണ്ണിടിച്ചിലിനെ തുടർന്ന് ക്കാങ്കൺ പാതയിൽ തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഇന്ന് പുനഃസ്ഥാപിച്ചേക്കില്ല തുടർച്ചയായ മഴ മൂലം അറ്റകുറ്റപ്പണികൾ വൈക്യുന്ന്താണ് ഇതിന് കാരണം യുദ്ധ കാല അടിസ്ഥാനത്തിൽ പാളം വീണ്ടും ഗതാഗതയോഗ്യമാക്കാൻ നടപടികൾ തുടരുകയാണ് ഇന്നലെ ഉച്ചയോടെ മംഗളുരു ബംഗ ളുരു പാതയിൽ ഗ്താഗത്തം പുനഃസ്ഥാപിച്ചിരുന്നു അതിനിട്ടെ ഇന്നത്തെ കൊച്ചു വേളി ലോകമാന്യ തിലക് ദൈവാര സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൊച്ചുവേളി ചണ്ഡീഗഡ് സംപർക് ക്രാന്തി എക്സ്പ്രസ് എറണാകുളം മഡ്ഗാവ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉൾപ്പെടെ ആറ് ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്

സിസ്റ്റർ അഭയകേസിൽ വിചാരണ ഇന്ന് തുടങ്ങും തിരുവന ന്തപുരം സിബിഐ പ്രത്യേക കോടതിയിലാണ് വിചാരണ

വിചാരണ തട്ടിയണമെന്നാവശ്യപ്പെട്ട് പ്രതി കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സാഹചര്യത്തിൽ നടപടി കൾ നിരന്തരമായി മാറ്റിവെയ്ക്കുകയാ്യിരുന്നു എന്നാൽ ഹർജി കൾ ഹൈക്കോടതിക്ക് പിന്നാലെ സുപ്രീംകോടതിയും നിരസിച്ച തോടെയാണ് പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയത്

തോമസ് എം കോട്ടൂർ സിസ്റ്റർ സെഫി എന്നിവരാണ് കേസിലെ പ്രതികൾ

രണ്ട് കിലോ കഞ്ചാവുമായി യുവാവിനെ വയനാട് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി പാലക്കാട് മണ്ണാർക്കാട് ആനല്ലൂർ സ്വദേശി മുഹമ്മദ് സനൂസ് ആണ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്ന കെ എസ്

കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാന്റ് ചെയ്തു സ്വർണവില വീണ്ടും കൂടുന്നു